നിരവധി അവസരങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

രോഗികൾ

പത്രിക പിൻവീലിക്കാനുള്ള അവസാന ദിനം തിങ്കളാഴ്ച

ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണത്തിന് സർക്കാർ അനുമതി തേടുന്നതായി റിപ്പോർട്ട് പ്രതികാരനടപടിയിലൂടെ നിശ്ശബ്ദമാക്കാമെന്ന് കരുതേണ്ടെന്ന് കെ

സി സി അധ്യക്ഷൻ

ആസൂത്രിത ശ്രമം നടത്തുന്നതായി പ്രതിപക്ഷനേതാവ് നിയമസഭയെയും ഇതിനായി ഉപയോഗിക്കുന്നതായി രമേശ് ചെന്നിത്തല

ഗുജറാത്തിലെ പണ്ഡിറ്റ് ദീൻദയാൽ പെട്രോളിയം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിനെ വെർചലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു നരേന്ദ്രമോദി

ആത്മനിർഭർ ഭാരത് യാഥാർത്ഥ്യമാക്കാൻ നാം ഓരോരുത്തരും പോരാളികളായി മാറണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു ജമ്മുകശ്മീർ ജമ്മുകശ്മീരിൽ പാകിസ്ഥാൻ നടത്തിയ വെടിനിർത്തൽ കരാർ ലംഘനത്തിൽ ജവാന് വീരമൃത്യൂ

അവന്തിപ്പോരയിൽ ജയ്ഷ് ഇ മുഹമ്മദ് ഭീകരസംഘടനയുമായി പ്രബീന്ധമുള്ള രണ്ട് പേരെ സുരക്ഷാസേന അറസ്റ്റ് ചെയ്തു

പാകിസ്ഥാൻ പ്രിൽവരുടെ മണ്ണ് ഭീകര കേന്ദ്രമാക്കി വളർത്തുന്നതിനും ഇന്ത്യ്ക്കെതിരെ ആക്രമണം അഴിച്ചു വിടുന്നതിലും വിദേശക്ട്ര്യ മന്ത്രാലയം ശക്തമായ പ്രതിഷേധം അറിയിച്ചു

ഏറ്റവും കൂടുതൽ രോഗികളുള്ള അമേരിക്കയിൽ ഇന്നലെ മാത്രം രണ്ട് ലക്ഷം പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്

രാജ്യത്തിന്റെ കൊവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ആരോഗ്യസേതു നിർണായക പങ്കുവഹിച്ചെന്നും സാങ്കേതിക രംഗത്തെ സ്ഥുതാരൃത ഉറപ്പാക്കാൻ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രാലയം ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി ബാർകോഴക്കേസ് ബാർ കോഴക്കേസിൽ പ്രതിപ്പ്ക്ഷ് നേതാവ് രമേശ് ചെന്നിത്തലയ് ക്കെതിരെ വിജിലൻസ് അന്ന്വേഷണത്തിന് മുഖ്യമന്ത്രി അനുമതി നൽകിയതായി റിപ്പോർട്ട് ് രമേശ് ചെന്നിത്തലയ്ക്കും കോഴ നൽകിയെന്ന ബിജു രമേശിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം

ബാബു എന്നിവർക്കെതിരെയും അന്വേഷണം നടത്തും

സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതിപക്ഷ നേതാക്കളെ തെരെഞ്ഞുപിടിച്ച് പൊതു സമൂഹത്തിനുമുന്നിൽ വൃക്തിഹത്യ നടത്തുന്നതിനെതിരെ ഒറ്റക്കെട്ടായി പോരാടുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താലേഖകരോട് പറഞ്ഞു ബാർഉടമ നടത്തിയ വെളിപ്പെടുത്തലിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്നും കെ

സി സി അധ്യക്ഷൻ ചോദിച്ചു

കേന്ദ്ര ഏജൻസികളുടെ വിശ്വാസ്യത തകർക്കാനാണ് ഗ്രശമം

ബാർക്കോഴക്കേസിൽ ഏതന്വേഷണ ത്തെയും സ്വാഗതം ചെയ്യുന്നതായി പ്രതിപക്ഷനേതാവ് പറഞ്ഞു ആരും കോഴ തന്നിട്ടില്ലെന്നും ആരും കോഴ വാങ്ങിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു

പത്രികാ സമർപ്പണത്തിന്റെ സൂക്ഷ്മുപ്പതിശോധന പൂർത്തിയായപ്പോൾ മൂവായിരത്തിലധികം പത്രികകളാണ്ട് തള്ളിയത്

തെരെഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് പൊതുയോഗം ജാഥ തുടങ്ങിയവ സംഘടിപ്പിക്കുന്നതിന് മുൻകൂർ അനുമതി വാങ്ങണമെന്ന് തെരെഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു

എന്നാൽ ആഗോള വിപണിയിൽ വിലയിടിവ് തുടരുകയാണ്

ഓപ്ഷൻ സമർപ്പിക്കുന്ന വ്യാപാരികൾക്ക് പിഴയിലും പലിശയിലും നൂറ് ശതമാനം ഇളവ് ലഭിക്കും

എൻ ജനറൽ അസ്്ട്ബ്ലി ്ടെലിവിഷൻ ദിനാചരണ പ്രഖ്യാപനം നടത്തിയത്

പ്രോയ്സ് സ്മാർട്ട് ഫോണും ഐ പ്പാഡും ലാപ്ടോപ്പും ഉപയോഗിച്ച് ശീലിച്ച പുതിയ തലമുറയ്ക്ക് ദൃശ്ചൂർലോകത്തിന്റെ തുടക്കകാലം ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്

ടെലിവിഷനിലെ ആദ്യ ദൃശ്യം ഒരു വരയായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് പിന്നീട് ഡോളർ ചിഹ്നവും ടി വി യിൽ ദൃശ്യമായി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

മത്സ്യത്തിന് കൃത്യമായ വില ലഭിക്കാത്തതും മ്ത്സ്യബന്ധനത്തിനുള്ള അടിസ്ഥാന സൌകര്യങ്ങളുടെ കുറവുമാണ് ഈ മേഖല നേരിടുന്ന പ്രധാന പ്രതിസന്ധി